പ്രതീക്ഷയുടെ പുതു വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം പശ്ചാത്തലത്തിൽ കോവിഡ് പുതുവത്സരാഘോഷങ്ങൾക്ക് നിയന്ത്രണം

ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ശിലാസ്ഥാപന കർമം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂതന ചികിത്സാ സൌകരൃങ്ങൾക്കൊപ്പം പ്രതിരോധ പരിരക്ഷ്യിലും ശ്രദ്ധയൂന്നിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്തെന്ന് പ്രിധാനമന്ത്രി വൃക്തമാക്കി

പണത്തിന്റെ അപര്യാപ്തത മൂലം നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള തട്ടസ്സം പദ്ധതി നീക്കിയതായും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദശാബ്ദത്തിനുള്ളിൽ മികച്ച ചികിത്സ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചതിന് പ്രധാനമന്ത്രി ഗുജറാത്തിനെ അഭിനന്ദിച്ചു സംസ്ഥാനത്തിന്റെ ആരോഗ്യ ശൃംഖല ശക്തിപ്പെടുത്താൻ പുതിയ എയിംസിലൂടെ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വിദ്യാർഥികളും അധ്യാപകരും രക്ഷിതാക്കളും നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് പരീക്ഷകൾ നടത്താനാവശ്യമായ തയ്യാറെടുപ്പുകൾ സിബിഎസ്ഇ നടത്തിവരുന്നതായും അദ്ദേഹം വൃക്തമാക്കി

ഇന്ത്യയിൽ പ്രതിദിന ക്ടോവിഡ് മരണവും കുറയുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

വാക്സിൻ വിതരണത്തിന് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തയ്യാറാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൻ ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ഇന്ന് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ചർച്ച നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും തലസ്ഥാന നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഡ്രൈ റൺ നടത്തണം എന്നാൽ മഹാരാഷ്ട്രയും കേരളവും ഉൾപ്പടെയുള്ള ചില സർസ്ഥാനങ്ങൾ തലസ്ഥാന നഗരങ്ങൾ അല്ലാത്ത പ്രദേശങ്ങളിലൂർ ഡ്രൈ റൺ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്

അടുത്തിടെ യു

കർഷക സമരം തുടരുന്നത് കേരളത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ വരവ് നിലച്ചാൽ കേരളം പട്ടിണിയിലാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചു കൊണ്ട് കാർഷിക രംഗത്ത് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മീ ശ്രീ വിജയ

കൂടിച്ചേരലൂകൾ പരമാവധി ഒഴിവാക്കി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് അധികാരികൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഏറെ ജാഗ്രതയോടെയാണ് ആഘോഷം

നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമനടപടികൾ സ്വീകരിക്കാനും നിർദേശമുണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ആഘോഷപരിപാടികൾക്ക് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ ഒട്ടേറെ പ്രതിഭകൾ വിട പറഞ്ഞു പോയി തികച്ചും വ്യത്യസ്തമായ ജീവിത രീതി അവലംബിച്ചും പരമാവധി വീടുകളിലേക്ക് ഒതുങ്ങിയും ജനങ്ങൾ ജീവിച്ചു

കോവിഡിനെതിരെയുള്ള പ്രതിരോധമരുന്ന് ഫലപ്രദ്മാകും എന്ന പ്രതീക്ഷയിലും മഹാമാരിയെ ഭയക്കാതെ സ്വതന്ത്രമായ ഒരു ജീവിതം സ്വപ്നം കണ്ടും ലോകത്തെ കോടാനുകോടി ജനങ്ങൾ പകിട്ടാർന്ന ആഘോഷങ്ങളില്ലാതെ പ്രതീക്ഷയുടെ ഒരു പുതിയ വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്

ഓരോ പുതുവർഷവും ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ള അവസരമാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിഡ് പറഞ്ഞു നിരവധി പാഠങ്ങൾ പകർന്ന് നൽകിയ ഈ വർഷത്തിന് വിടനൽകി വളരെയധികം പ്രതീക്ഷകളോടെ ആയിരിക്കണം നാം പുതുവത്സരത്തെ വരവേൽക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ആശംസ സന്ദേശത്തിലൂടെ അറിയിച്ചു

ഇനിമുതൽ ടിക്കറ്റിനൊപ്പം ഭക്ഷണം വിശ്രമമുറി ഹോട്ടൽ എന്നിവയും ബുക്ക് ചെയ്യാം ഐആർസിടിസി വെബ്സൈറ്റിന്റെ സൈബർ സുരക്ഷയും വർധിപ്പിച്ചിട്ടുണ്ട്

സ്വർണവിലയിൽ മാറ്റമില്ല

മത്സരങ്ങളുടെ തീയതിയും സ്ഥലവും പിന്നീട് തീരുമാനിക്കും